സിക്ക് തോൽവി ദർവ്വട്ടെഴ ത്രിപുര മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെര ഞ്ഞെടുപ്പ് ഫലം ഇന്ന്

ഉച്ചയോടെ ഫലമറിയാം

തെരഞ്ഞെടുപ്പ് ചരി ത്രത്തിൽ ആദ്യമായാണ് ത്രിപുരയിൽ ഇടതുപക്ഷവും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് കെട്ടി വെച്ച തുക തിരിച്ചുകിട്ടിയത്

ജെ

നാഗാലാന്റിൽ ബി ജെ

അവിടെ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുമായി ബി ജെ പി സഖ്യമുണ്ടാക്കിയിരുന്നു മൂന്ന് ചെറു സംസ്ഥാന ങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽതന്നെ മാറ്റ ങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്കും അവരുടെ സഖ്യത്തിനും വിജയം ഉണ്ടാകുമെ ന്നാണ് പ്രവചിക്കുന്നത്

എം സ്ഥാനാർത്ഥിയും മന്ത്രിയുമാ യിരുന്ന ഖഗേന്ദ്ര ജമതിയ മരണമടഞ്ഞു രക്താർബുദത്തെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം രുട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് അറിയിച്ച സമരം ഒഴിവാക്കാൻ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തും തൊഴിൽഭ വനിൽ പതിനൊന്ന് മണിക്കാണ് ചർച്ചു സ്കാര്യ ആശുപത്രി മാനേജ്മെന്റു കളെ സഹായിക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുക യാണെന്ന് ആരോപിച്ചാണ് നഴ്സൂമാരുടെ സമരം

സമരത്തെ ഹൈക്കോടതി നേരത്തെ വിലക്കിയിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും

അഞ്ചുവയസ്സ് എത്താത്ത ഇരുപത്തഞ്ചര ലക്ഷത്തിൽപ്പരം കുട്ടി കൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഇരുപത്തി അയ്യായിരത്തോളം വാക്സിനേഷൻ ബൂത്തുകൾ സജ്ജീകരിക്കും ഇതിനുപുറമെ റെയിൽവെ സ്റ്റേഷൻ ബസ്സ്റ്റാന്റ് എന്നിവിടങ്ങളിലും ബൂത്തു കൾ ഏർപ്പെടുത്തും മൊബൈൽ ബൂത്തുകളും പ്രതിരോധ പരിപാടിക്ക് പ്രയോജനപ്പെടുത്തും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗൃവകുപ്പ് അറിയിച്ചു നേരത്തെ പോളിയോ വാക്സിൻ നൽകിയ കുഞ്ഞുങ്ങൾക്കും പൾസ് പോളിയോ ദിനത്തിൽ തുള്ളിമരുന്ന് നൽകേണ്ട താണ്

എൽ ഡി എഫ് വിപുലീകരണം സി പി ഐ എം ഭിന്നത കേരള കോൺഗ്രസ് എം സമീപനം എന്നിവ ചർച്ചക്ക് വരും ഇന്നലെ രാത്രി രാഷ്ട്രീയ റിപ്പോർട്ടിലെ ചർച്ചക്ക് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡി രാജ മുപടി നൽകി വൈകീട്ട് സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസുമായി ധാരണയുണ്ടാക്കി ഇടതു പക്ഷത്തിന്റെ പ്രതീക്ഷകൾ തകർക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ കാണരുതെന്നും മുഖ്യശത്രുവായ ബി ജെ പി ക്ക് എതിരെ സമാന മനസ്കരുമായി കൂട്ടുചേരണമെന്നും മുഖ്യമന്ത്രിയോട് വിയോജിച്ച സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു സമ്മേളനം റെഡ് വളണ്ടിയർ മാർച്ചോടെ നാളെ സമാപിക്കും

പിമാരും എം എൽ എമാരും പ്രതികളായ ക്രിമിനൽ കേസുകൾ വിചാ രണ ചെയ്യുന്ന പ്രത്യേക കോടതി ഇന്ന് കൊച്ചിയിൽ പ്രവർത്തനമാരംഭിക്കും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിക്കുന്ന കോടതിക്ക് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പദവി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജി സുരേന്ദ്രമോഹൻ പ്രത്യേക കോടതി ഉദ്ഘാടനം ചെയ്യും

രണ്ടായിരം പേർക്ക് ആഹാരം നൽകാവുന്ന തരത്തിലാണ് ഭക്ഷണശാല തുറക്കുന്നത് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനം രുട്ടിട്ട്ട്ട്ട്ട്ട കണ്ണൂർ വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലെ മരംമുറിച്ചെന്ന പരാതിയിൽ തുടരമ്പേഷണം നടത്തി ഒരുമാസത്തിനകം റിപ്പോർട്ട് നൽകാൻ തലശ്ശേരി വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി ഉത്തരവിട്ടു

ബാബു തുടങ്ങിയവർക്കെതിരെയാണ് പരാതി

ഹിന്ദു യുവസേന എന്ന സംഘടനയുടെ സ്ഥാപകനും കർണാടകയിലെ മധൂർ സ്വദേശിയുമായ നവീൻ കുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്

രുട്ടിട്ട്ട്ട്ട്ട്ട കോഴിക്കോട് സംസ്ഥാന കോളജ് ഗെയിംസിന്റെ അത്ലറ്റിക്സിൽ ഇരി ങ്ങാലക്കുട ക്രൈസ്റ്റ് കോളജ് പുരുഷ വിഭാഗത്തിലും പാല അൽഫോൺസ കോളജ് വനിതാ വിഭാഗത്തിലും മുന്നിലെത്തി രണ്ടാം ദിവസമായ ഇന്നലെ ട്രാക്കിൽ രണ്ട് റെക്കോർഡുകൾ പിറന്നു

നിമ്മിയും ഡെക്കാത്ലണിൽ ചെമ്പഴന്തി എസ് എൻ കോളജിലെ കെ ആർ ഗോകുലുമാണ് റെക്കോർഡ് കുറിച്ചത് ഗെയിംസ് ഇന്ന് സമാപിക്കും

സിക്ക് തിരിച്ചടി

സിയെ തോൽപ്പിച്ചു സീസണിലെ അവസാന മത്സരത്തിൽ മോഹൻബഗാനെ തോൽപ്പിക്കുകയും ഷില്ലോംഗ് ഈസ്റ്റ് ബംഗാളിനോട് തോൽക്കുകയും ചെയ്താൽ മാത്രമേ ഗോകുലത്തിന് ഇനി സൂപ്പർ കപ്പ് സാധ്യത നില നിർത്താൻ കഴിയൂ

രുട്ടിട്ട്ട്ട്ട്ട്ട്ട ഇടുക്കി നെടുങ്കണ്ടം താലൂക്കാശുപത്രി ജില്ലാ ആശുപത്രി പദവിയിലേക്ക് ഉയർത്തുന്നതിന് രൂപരേഖ തയ്യാറായതായി മന്ത്രി എം

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഒരു വനിതാ പ്രസിദ്ധീകരണത്തിന്റെ മുഖചിത്രത്തിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചുവെന്ന് പരാതിപ്പെട്ട് കൊല്ലം ചീഫ് ജുഡീഷ്യൽ മ ജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു സംസ്ഥാന ബാലാവകാ ശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് കുട്ടിയെ മൂലയുട്ടുന്ന അമ്മയുടെ ചിത്രം ആ ഭാ സ ക ര മാ യി ചിത്രീക രിച്ചു വെ ന്ന പ രാ തി പ്പെട്ട് അഭിഭാഷകൻ കൂടിയായ നോബിൾ മാത്യുവാണ് ഹർജി നൽകിയത്

കാറിലും ഓട്ടോയിലും കടത്തുക യായിരുന്ന പതിനാറ് കിലോ കഞ്ചാവും ചില്ലറ വില്പനക്കെത്തിച്ച അര ക്കിലോ കഞ്ചാവും പൊലീസ് പിടികൂടി നാലുപേരെ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കടത്തുസംഘം സഞ്ചരിച്ച കാറും ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു കുമ്പളയിലെ അബ്ദുൾ റഷീദ് അബ്ദുൾ ലത്തീഫ് മംഗൽപാടിയിലെ മൊയ്തീൻ നവാസ് മുഷ്താഖ് അഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് ദർവ്വട്ടെഴ സംസ്ഥാനത്ത് ചൂടിന്റെ വ്യതിയാനം ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടാ ണെന്ന് കലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

പുറപ്പെട്ടത്ത കണ്ണൂരിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ദക്ഷിണേന്ത്യൻ സാംസ്കാരികോത്സവത്തിൽ ഇന്ന് രാവിലെ സെമിനാറുകൾ ആരംഭിക്കും

വൈകീട്ട് ടൌൺ സ്ക്വയറിൽ സാംസ്കാരിക സമ്മേളനം മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും

ടി എം കാർഡ് നമ്പരും ഒ ടി പി വിവരങ്ങളും ചോദിച്ച് പണംത ട്ടുന്ന രണ്ടുപേരെ മഞ്ചേരിയിൽ പൊലീസ് അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് സ്വദേശികളായ ആശാദേവി ബദ്രി മണ്ഡൽ എന്നിവരാണ് പിടിയിലായത് കേസിലുൾപ്പെട്ട മൂന്നുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർക്കായി അന്വേ ഷണം ശക്തമാക്കിയതായും പൊലീസ് അറിയിച്ചു

സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശൃത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോളജിലെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അവസാന വർഷ വിദ്യാർത്ഥി അസ്ലം സലീമിനെതിരെ കേസെടുത്തത് രുട്ടിട്ട്ട്ട്ട്ട്ട്ട കണ്ണൂരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കേണ്ടത് മാനവികതയുടെ ആവശ്യമാണെന്നും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാൽ സാധിക്കുമെന്നും പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ കൊല്ലത്ത് പറഞ്ഞു ചിത്രകാരൻ സന്തോഷ് ആശ്രാമത്തിന്റെ അഷ്ടമുടിക്കായലും മയ്യഴിത്തുമ്പികളും എന്ന പുസ്തകം പ്രകാശനം ലെയ് ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുട്ടിട്ട്ട്ട്ട്ട്ട്ട കൊച്ചിയിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കൃതി പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാരൂർ നീലകണ്ഠപിള്ള സ്മാരക ചെറുകഥാ മത്സരത്തിൽ വി

ദേവദാസിന്റെ പന്തിരുകുലം എന്ന ചെറുകഥ ഒന്നാംസ്ഥാനം നേടി ഒരുലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം

ചാരായ വിൽപനയ്ക്കിടെ കഴിഞ്ഞദിവസം പിടിയിലായ പ്രതിയെ ചോദ്യംചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെർച്ചിലിലാണ് പ്രതിയുടെ വീട്ടിലും പരിസരത്തും നിന്നുമായി കോട കണ്ടെത്തിയത് ദർവ്വെടു റേഷൻ സംവിധാനം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഇ പോസ് സംവിധാനത്തിന് പത്തനംതിട്ട ജില്ലയിൽ തുടക്കമായി